ന് കേരളത്തിൽ പുതുതായി ആർക്കും നിപാ ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർഷ വർദ്ധൻ

പശ്ചിമ ബംഗാളിൽ ക്രമസമാധന നില പുനസ്ഥാപിക്കണമെന്ന് കേന്ദ്രം

ജെ പി ്രജനസേവനം നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ദ്വിരാഷ്ട്ര സന്ദർശ്നത്തിന് ശേഷമാണ് അദ്ദേഹം തിരുപ്പതിയിലേക്ക് പോയത്

തിരുപ്പതിയിലെ വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹം പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്

ആന്ധ്രാപ്രദേശിന്റെ വികസനത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാലദ്വീപ് ശ്രീലങ്ക എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിച്ച് ശേഷമാണ് പ്രധാനമന്ത്രി തിരുപ്പതിയിൽ എത്തിയത് പ്രധാനമന്ത്രിയായി രണ്ടാമതും ചുമതലയേറ്റ ശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നു ഇത് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനമെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ഇന്നലെ ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയ ശ്രീ മോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി

ദിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ കഴിഞ്ഞ ദിവസം മാലദ്വീപിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രിമ്മോദി വിവിധ കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു

ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യോഗത്തിൽ പങ്കെടുത്തു ഫെയ്സ്ബുക്ക് ഗൂഗിൾ നെറ്റ്ഫ്ളിക്സ് പോലുള്ള ഡിജിറ്റൽ കമ്പനികൾ ഇന്ത്യയിലും വൻ സാന്നിധ്യം ആയിട്ടുണ്ട് എന്നാൽ ഇവയിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാൻ കഴിയുന്നില്ലെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയതായി ധനമന്ത്രാലയം അറിയിച്ചു

ഡിജിറ്റൽ സാമ്പത്തിക വൃവസ്ഥയുടെ ഭാഗമായി രാജ്യത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ പോലും ഇന്തൃയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ട്

വികസിത രാജ്യങ്ങൾ ഇലക്ട്രോണിക് വ്യാപ്രിരിന്യം രൂപീകരിക്കണമെന്നും ഇന്ത്യ നിർദ്ദേശിച്ചു

മോശമായ കാലാവസ്ഥ തെരച്ചിൽ ദുഷ്കരമാക്കുന്നുണ്ട് ഹെലികോപ്ടർ ഉപയോഗിച്ചാണ് വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്

പൊതുതിരഞ്ഞെടുപ്പിനുശേഷവും പശ്ചിമ ബംഗാളിൽ തുട രുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ആശങ്ക രേഖപ്പെ ടുത്തി കഴിഞ്ഞ ആഴ്ചയിലുടനീളം തുടർന്ന അക്രമ സംഭവങ്ങൾ സംസ്ഥാനത്തെ നിയമ സംവിധാനത്തിന്റെ പിഴവാണ് ചൂണ്ടിക്കാട്ടുന്ന തെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നു ഭാങ്കിപ്പാരയിൽ തിരഞ്ഞെടുപ്പിനുശേഷ്ട് നടന്ന അക്രമ സംഭവങ്ങളിൽ കഴിഞ്ഞ ദിവസം നാല് പേർ കൊല്ലപ്പെട്ടു നേരെത്തെയും പശ്ചിമബം ഗാളിലെ വിവിധിയിടങ്ങളിൽ നടിന്നു അക്രമ സംഭവങ്ങളിൽ ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടമായി കൃത്യനിർവ്വഹണത്തിൽ വീഴ്ച വരു ത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു

തുടർച്ചയായി രണ്ടാം ദിവസമാണ് റെയ്ഡ് നിയമനങ്ങളിൽ അഴിമതി നടന്നെന്ന ആരോപണത്തെ തുടർന്നാണ് പരിശോധന ബാങ്കിന്റെ ചെയർമാനെ ഇന്നലെ പിരിച്ചു വിട്ടിരുന്നു

ബംഗുളുരുവിലും കർണ്ണാടകയുടെ വിവിധ ഭാഗങ്ങളിലുമാണ് ഇയാൾ വ്യാജ കറൻസികൾ വിതരണം ചെയ്തത്

നിലവിൽ നിപ രോഗബാധിതനായി വിദ്യാർത്ഥിയുടെ നില മെച്ചപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു ഐസൊലേഷൻ വാർഡിൽ ചികിത്സയി ലുള്ള എട്ട് രോഗികളിൽ ഏഴ് പേരും നിപ ബാധിതരല്ലെന്ന് കണ്ടെ ത്തി

ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ് ഇവ ശേഖരിച്ചതെന്ന് ഔദ്യോഗിക പത്രക്കുറിപ്പിൽ വൃക്തമാക്കി കേന്ദ്രമന്ത്രി ഹർഷ് വർധൻ നേരിട്ടാണ് കേരളത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്

യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾക്കും എഞ്ചിൻ ഘടിപ്പിച്ച യാനങ്ങൾക്കും നിരോധനം ബാധകമാണ് പരമ്പരാഗത മീൻപിടുത്ത യാനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല എല്ലാ തീരദേശ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്

അതേസമയം ലക്ഷദ്വീപിന് സമീപം അറബിക്കടലിൽ രൂപം കൊള്ളുന്ന വായു ചുഴലിക്കാറ്റിന് തീവ്രതയേറാൻ സാധൃതയുണ്ട് ഇത് കേരളത്തിലെ കാലവർഷത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി വായു ചുഴലിക്കാറ്റ് അതി തീവ്ര ചുഴലിക്കാറ്റായി ഗുജറാത്ത് തീരം വഴി പാകിസ്ഥാനിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇന്ത്യയാണ് പുതിയ ചുഴലിക്കാറ്റിന് വായു എന്ന പേര് നിർദ്ദേശിച്ചത്

കേരളത്തിൽ നാലാംവർഷത്തിലേക്ക് കടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ഇന്ന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് റിപ്പോർട്ട് നൽകി പ്രകാശനം നിർവഹിക്കും

സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് രണ്ടാം ജയം

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യൻ സ്മയ്ം മൂന്ന് മണിക്ക് ദക്ഷിണാഫ്രിക്ക വെസ്റ്റിന്റീസിനെ നേരിടും

ഓസ്ട്രിയൻ താരം ഡൊമനിക് തീമിനെ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്കാണ് നദാൽ പരാജയപ്പെടുത്തിയത് തുടർച്ചയായ രണ്ടാം തവണയാണ് നദാൽ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ ഡൊമനിക് തീമിനെ പരാജയപ്പെടുത്തുന്നത്

പൂൾ എ യിൽ ഇന്ത്യയുടെ മൂന്നാമത്തേയും അവസാനത്തേയും മത്സരമാണിത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ ഗ്രൂപ്പിൽ പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്താണ്